പ്രധാനമന്ത്രിയാണ് സർവകലാശാലയുടെ ചാൻസ്ലർ

വിശദാംശങ്ങളിലേക്ക്

ചടങ്ങിൽ ആറ് സംസ്ഥാനങ്ങളിലെ കർഷകരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും കർഷക ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പ്രയോജനങ്ങൾ കർഷകർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും കേന്ദ്രകൃഷിമന്ത്രിയും ചടങ്ങിൽ സംബന്ധിക്കും

ലയനത്തിൽ ജീവനക്കാർക്ക് ആശങ്ക വേണ്ടതില്ലെന്നും ആർക്കും തൊഴിൽ നഷ്ടമാകില്ലെന്നും ശ്രീ

ഡൽഹിയിലെ അനധികൃത കോളനികൾക്കെതിരെ അടുത്ത ദ വർഷത്തേക്ക് കൂടി നടപടി എടുക്കേണ്ടതില്ലെന്നും മന്ത്രിസഭ തീരുമാനിച്ചു

സാമ്പത്തിക ആരോഗൃ വിദ്യാഭ്യാസ രംഗങ്ങളിലെയും വാണിജൃം തൊഴിൽ സേവന മേഖല കൃഷി ജലവിഭവം തുടങ്ങിയ രംഗങ്ങളിലെയും വിദഗ്ധർ യോഗങ്ങളിൽ പങ്കെടുത്തു

സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ സംയുക്ത സേനാമേധാവിയെ ധരിപ്പിച്ചു

ഗ്രാമങ്ങളുടെയും കർഷകരുടെയും വികസനത്തിനായി സ്വന്തം ജീവിതം സമർപ്പിച്ച വൃക്തിയായിരുന്നു ചരൺസിംഗ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ജനിതക വ്യതിയാനം സംഭവിച്ച ഈ വൈറസ് വളരെ പെട്ടെന്ന് പകരുന്നതായും യുവാക്കളെ കൂടുതൽ ബാധിക്കുന്നതായും ആണ് യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ കണക്കാക്കുന്നത്

ഇതിൽ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനിൽ കണ്ടെത്തിയ വ്യതിയാനം രോഗവ്യാപനം കൂടുതൽ വേഗത്തിലാക്കി തീർക്കുമെന്നാണ് കണ്ടെത്തൽ

കൊവിഡ് പോസിറ്റീവ് ആകുന്നവർക്ക് സ്പൈക്ക് ജീൻ അധിഷ്ഠിത പിസിആർ ടെസ്റ്റ് നടത്തണമെന്നും നിർദേശമുണ്ട്

എറണാകുളം കോട്ടയം കോഴിക്കോട് തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ക്ക്ോവീഡ് വ്യാപനം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും ജനിതക പ്രകഭേദം വന്ന വൈറസിന്റെ ഭീഷണി നിലനിൽക്കുന്ന സിങ്ക്ചരൃത്തിലും ആഘോഷവേളകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം കേരളത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞ് വരുന്ന സാഹചര്യത്തിലാണ് തദ്ദേശസ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രോഗവ്യാപന സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറഞ്ഞതുപോലെ വീണ്ടും കോവിഡ് വ്യാപനം കൂടി വരികയാണ് മതപരമായ ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ നടത്താൻ പാടുള്ളൂവെന്നും മന്ത്രി വൃക്തമാക്കി

സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു

പൂർണമായും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ

തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതിയാണ് ശിക്ഷ വിധിച്ചത്

എല്ലിൽ ജംഷഡ്പൂർ ഗോവയെ നേരിടുന്നു ഗോവയിലാണ് കളി നടക്കുന്നത് ആദ്യ നാലിൽ ഇടം പ്രതീക്ഷിച്ചാണ് ഇന്ന് ജംഷഡ്പൂർ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്